സംസ്ഥാനത്ത് പുതുതായി മൂന്നുപേരിൽക്കൂടി കോവിഡ് സ്ഥിരീ കരിച്ചു ലോകത്തെ കൊറോണ മരണം ഏഴായിരം കവിഞ്ഞു അമേരിക്ക മനുഷ്യനിൽ കൊറോണ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചു കൊറോണ് വ്യാപനം ആശങ്കാജനകമാണെങ്കിലും ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമാണെന്ന് മന്ത്രി കെ

മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തു

നീന്തൽക്കുളങ്ങൾ ജിംനേ ഷ്യങ്ങൾ എന്നിവയും അടക്കും

ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അയച്ചു

സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് അവരുടെ വീടു കളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ അവസരമൊരുക്കണ മെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

രോഗ വുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ നമ്പറിൽ ലഭ്യമാണ്

എ

കൊറോണ വൈറസിനെതിരെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പരിഹാര നിർദ്ദേശങ്ങൾ പങ്കു വെ യ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആവ ശ്യപ്പെട്ടു നിരവധിയാളുകൾ ഇത്ത്രം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും പ്രയോജന പ്രദമായ തര ത്തിൽ ഈ വിവരങ്ങൾ ാൃഴ്ച് പ്ലാറ്റ്ഫോമിലേക്ക് നൽക ണമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു മികച്ച നിർദ്ദേ ശങ്ങൾക്ക് പാരിതോഷികം നൽകുമെന്നും നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു

മലപ്പുറത്ത് രണ്ടുപേർക്കും കാസർകോട്ട് ഒരാൾക്കു മാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇവർ വിദേ ശത്തുനിന്ന് എത്തി നിരീക്ഷണത്തിൽ കഴിയുന്നവരാണ് മലപ്പുറത്ത് ജിദ്ദയിൽനിന്ന് എത്തിയ രണ്ട് സ്ത്രീകൾക്കും

സംസ്ഥാനത്തെ കൊറോണ് സാഹ് ചര്യവും സെൻസസും ഉൾപ്പെടെ കാര്യങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ഇന്നലെ സർവ്വകക്ഷി യോഗം ചേർന്നു

രോഗല ക്ഷണം കാണിച്ച ആറുപേരെ വീടുകളിൽ നിർബന്ധിത നിരീക്ഷണത്തിന് അയച്ചു

പരിശോധനക്കയച്ച ഒരു സാമ്പിൾ പോസി റ്റീവാണ്

സ്ഥിതിഗതികൾ നില വിൽ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി

മെഡിക്കൽ കോളേജിൽ നാലുപേരും ബീച്ച് ആശുപത്രിയിൽ നാലു പേരും ഐസൊലേഷൻ വാർഡുകളിലുണ്ട്

ജില്ലയിലെ ഹൈഡൽ ടൂറിസം ഉൾപ്പെടെ എല്ലാ ടൂറിസം സെന്ററുക ളുടെയും പ്രവർത്തനം ജീപ്പ് സവാരി എന്നിവ ജില്ലാക ലക്ടർ നിരോധിച്ചു

നീരീക്ഷണത്തിൽ ഉള്ളവർ വീടിനു പുറത്തുപോകുന്നില്ലെന്ന് പൊലീസ് ഉറപ്പുവരു ത്തുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു ജില്ലയിൽ നിരീ ക്ഷണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു

ഗോപാലകൃഷ്ണൻ അറിയിച്ചു

ഡോക്ടർക്കൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവരെയും കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു ഇതി നായി റൂട്ട്മാപ്പ് തയ്യാറാക്കി വരികയാണെന്നും കലക്ടർ പറഞ്ഞു

കൊറോണ വ്യാപനം ആശങ്കാ ജനകമാണെങ്കിലും ഇറക്കുമതി ചെയ്ത ഭക്ഷ്യ വസ്തുക്കൾ തികച്ചും സുര ക്ഷിതമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതായി മന്ത്രി കെ

മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദ് രാജ്യസഭാംഗമായി നാമ നിർദ്ദേശം ചെയ്തു